ഇതിന്റെ ഭാഗമായി ഇന്ന് പ്രധാന പ്രതി ജോളിയുടെ ഭർത്താവ് ഷാജുവിനെയും അദ്ദേഹത്തിന്റെ പിതാവ് സക്കറിയയെയും വടകര റൂറൽ എസ് പി ഓഫീസിൽ ചോദ്യം ചെയ്തു വരുന്നു ജോളിയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ മൊഴിയെടുക്കുന്നത് ജോളിയേയും റൂറൽ പോലീസ് ഓഫിസിൽ എത്തിച്ചിട്ടുണ്ട് ഷാജുവിന്റെ ഒന്നരവയസ്സുകാരി മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷാജുവിന്റെ സഹോദരി ഷീനയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു അന്വേഷണത്തിന് സാങ്കേതിക സഹായം നൽകുന്നതിന് ഐ സി ടി വിഭാഗം മേധാവി ദിവ്യാ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ സംഘവും കോഴിക്കോട് റൂറൽ പോലീസ് ആസ്ഥാനത്തെത്തി സംഭവസ്ഥലം അവർ സന്ദർശിക്കും അതേസമയം കേസിലെ പരാതിക്കാരനായ റോയ് തോമസിന്റെ സഹോദരൻ റോജോ കേരളത്തിലെത്തി ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ അദ്ദേഹം വൈക്കത്തെ സഹോദരിയുടെ വീട്ടിലേക്കാണ് പോയത് പൊന്നമറ്റം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കലക്ട്രേറ്റിൽ റവന്യൂഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്

രണ്ടാം പ്രതി മാത്യുവിനെ ക്യാംപ് ഓഫിസിൽ ചോദ്യം ചെയ്യുന്നുണ്ട്

റവന്യൂ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗ മായി ഡെപ്യൂട്ടി കലക്ടർ സി ബിജുവാണ് മൊഴി രേഖപ്പെ ടുത്തിയത്

മുങ്ങിമരണമെന്ന് പൊലീസ് വിധിയെഴുതിയ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി

പി എസ് സി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും

അഭിമുഖത്തിൽ കൂടുതൽ മാർക്ക് നൽകിയതിനെ തുർന്ന് രണ്ട് തസ്തികകളിൽ യൂണിയൻ നേതാവിനും മന്ത്രിബന്ധു വിനും ഒന്നാം റാങ്ക് ലഭിച്ചതാണ് വിവാദമായത് സുപ്രീംകോ ടതി വിധിയും ചട്ടങ്ങളും ലംഘിച്ച് നടത്തിയ മാർക്ക് ദാന ത്തിനെതിരെ ഉദ്യോഗാർത്ഥികൾ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരാതികൾ നൽകും

നാളെയും വ്യാഴാഴ്ചയും അടുത്ത തിങ്കളാഴ്ചയുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി

അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയും അലംഭാവവും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നാണ് റിപ്പോർട്ട് വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ ഡി വൈ എസ് പി ശൃാംകുമാറാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ തലവൻ

സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി കൃത്ജ്ഞതാ ബലി യിൽ മുഖ്യ കാർമ്മിക നാ കും തല ശ്ശേരി അതിരൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പാംപ്പാനി വചന സന്ദേശം നൽകും ഇന്ത്യയിൽ നിന്നെത്തിയ കർദ്ദിനാൾമാരും വിശ്വാസികളും രാഷ്ട്രീയ നേതാക്കളും പ്രചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യൻ സമയം ഉച്ച്കഴിഞ്ഞ് ഒന്നരയോടെയാണ് ചടങ്ങുകൾ നടക്കു ക ചരക്കുസേവന നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ സാധൃതകൾ പഠിക്കാൻ കേന്ദ്രം നിയോഗിച്ച ഉന്നതലസമി തിയുടെ ആദ്യയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും ജി എസ് ടി വരുമാനം കുറയാനിടയായ സാഹചര്യം പഠിച്ച് തിരു ത്തൽ നടപടികൾ നിർദ്ദേശിക്കാനാണ് സമിതി രൂപീകരിച്ചി രിക്കുന്നത്

വരുമാന വർദ്ധനയ്ക്കുതകുന്ന ശക്തമായ നടപടി നിർദ്ദേശിക്കാനും സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

നിക്ഷേപകർ ഒരു തര ത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അവർ ന്യൂഡൽഹിയിൽ ഇന്ത്യ എനർജി ഫോറം യോഗത്തിൽ പറ ഞ്ഞു അടുത്തയിടെ സോളാർ എനർജി കോർപറേഷനും എൻ ടി പി സിയും പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിൽ താരിഫ് നിരക്ക് കുറയ്ക്കണമെന്ന് ആന്ധ്രാപ്രദേശ് ആവശ്യപ്പെട്ടിരു ന്നു

വേതന പരിഷ്ക രണം ഉൾപ്പെടെ ആവശൃങ്ങളുന്നയിച്ച് അഖിലേന്തൃ എച്ച് എ എൽ ട്രേഡ് യൂണിയൻസ് കോ ഓർഡിനേഷൻ കമ്മറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം പതിനായിരത്തി ലേറെ ജീവനക്കാർ സമരത്തിലാണെന്ന് കോ ഓർഡിനേ ഷൻ കമ്മറ്റി അറിയിച്ചു

ഇവരിൽ പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നു ഇവരെ രക്ഷി ക്കാൻ ദേശീയ ദുരന്ത നിവാരണ സേനയും പൊലീസും തീവ്രശ്രമം തുടരുകയാണ്

ബുധനാഴ്ച നാല് ജില്ലകളിലും വ്യാഴാഴ്ച രണ്ട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബുധനാഴ്ച മലപ്പുറം തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിലും വൃാഴാഴ്ച എറണാകുളം ഇടുക്കി ജില്ലക ളിലുമാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്

മന്ത്രി സ്ഥാനത്തു നിന്ന് രാജിവെച്ച് ജലീൽ ജൂഡിഷ്യൽ അന്വേഷണം നേരിടണമെന്നും സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എം ജി സർവകലാശാലയിലെ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയ്ക്ക് അദാലത്തിലൂടെ മാർക്ക് കൂട്ടിനൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു എന്നും സർവകലാശാല അധികൃതർ ഇത് തള്ളിയപ്പോൾ അജണ്ടയിൽ ഉൾപ്പെടു ത്താതെ വിഷയം സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ചുവെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി ഒരു വിഷയത്തിൽ തോറ്റ എല്ലാ വർക്കും മോഡറേഷനു പുറമെ അഞ്ച് മാർക്ക് കൂട്ടി നൽകാ നായിരുന്നു ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരു മാനമെന്നും അദ്ദേഹം പറഞ്ഞു ആറാം സെമസ്റ്ററിലെ സപ്ലി മെന്ററി പരീക്ഷയിൽ ഒരു മാർക്കിന് തോറ്റ വിദ്യാർത്ഥി യ്ക്കാണ് അദാലത്തിലൂടെ മാർക്ക് കൂട്ടി നൽകി വിജയിപ്പി ക്കാൻ തീരുമാനിച്ചത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദാ ലത്തിൽ പങ്കെടുത്തും വിഷയത്തിൽ ഇടപെട്ടതും ചട്ടവിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു

അന്യാ യമായി ഒന്നും ചെയ്യില്ലെന്ന് ഉത്തമബോധ്യമുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്ക് ന്യായമായി ലഭിക്കേണ്ടത് ലഭ്യമാക്കു മെന്നും മന്ത്രി അറിയിച്ചു ഇല്ലാത്ത കാര്യത്തിന് എന്തിനാണ് ജുഡീഷ്യൽ അന്വേഷണമെന്ന് ജലീൽ ചോദിച്ചു

ബി സി സി ഐ ക്കായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തനിക്ക് ലഭിച്ച അവസരമായാണ് പ്രസിഡണ്ട് സ്ഥാനത്തെ കാണു ന്നതെന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു മധ്യപ്രദേശിലെ ഹർഷംഗാബാദിലുണ്ടായ വാഹനാപക ടത്തിൽ നാല് ഹോക്കി താരങ്ങൾ മരിച്ചു

മധ്യപ്രദേശ് ഹോക്കി അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന താരങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ധയാൻചന്ദ്ര ട്രോഫിയിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്ന താര ങ്ങൾസഞ്ചരിച്ച കാർ റോഡരികിലെ മരത്തിലിടിച്ച് മറിയു കയായിരുന്നു

മംഗലാപുരത്തു നിന്ന് കൊല്ലം പാരി പ്പള്ളിയിലേക്ക് പോകുകയായിരുന്ന ടാങ്കറാണ് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് വട്ടപ്പാറ വളവിൽ നാലാഴ്ചക്കിടെ മൂന്ന് പാചക വാതക ടാങ്കർ ലോറികളും ഒരു കണ്ടെയ്നർ ലോറി യുമാണ് മറിഞ്ഞത്

സൈനിക ഡിപ്പോകൾ കൂടി സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കേസ് ആയതിനാൽ ദേശീയ പ്രാധാന്യം പരിഗണിച്ചായിരിക്കും അന്വേഷണം നടക്കുക മാവോയിസ്റ്റ് സംഘടനകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്

രൂപത്തിലാക്കിയ നിലയിലായിരുന്നു സ്വർണ്ണം കണ്ടെത്തിയ ത്

പഴയങ്ങാടിക്കും കണ്ണപുരത്തിനുമിടയിൽ ചെറുകുന്നുതറ് ആസ്പത്രി റോഡിലെ ലെവൽ ക്രോസ് ഗെയിറ്റ് ആണ് പൊട്ടിവീണത്

ലൈൻ പുനഃസ്ഥാപിക്കുന്നതിന് നടപടി പുരോഗമിക്കുന്നു

തലശ്ശേരി ഭാഗത്തുനിന്നും വരുന്ന വലിയ വാഹനങ്ങൾ ദേശീയ പാതയിൽ നിന്ന് മാഹി സെമിത്തേരി റോഡ് വഴി തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ അഴിയൂരിൽ ദേശീയപാതയിൽ പ്രവേശിക്കണം വടകര ഭാഗത്തുനിന്ന് പോകുന്ന വാഹനങ്ങൾ മാഹി ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടു തിരിഞ്ഞ് പോകേണ്ടതാണ്